അറിയിച്ചു ഇതിൽ ഇരുപത്തിയഞ്ചര ലക്ഷത്തോളം പേർക്ക് ആദ്യ ഡോസും ശേഷിച്ചവർക്ക് രണ്ടാമത്തെ ഡോസുമാണ് നൽകിയത് സാമൂഹ്യ പ്രവർത്തകർ ജ്യോതിബ ഫൂലെയുടെ ജന്മവാർഷികത്തിന്റെ ഭാഗമായി ആരംഭിച്ച ടീക്ക ഉത്സവ് ഡോ

ദേദ കൊറോണക്കെതിരായ രണ്ടാം മഹായുദ്ധമാണ് ടീക്ക ഉത്സവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വിശേഷിപ്പിച്ചു കോവിഡ് വാക്സിനേഷൻ യജ്ഞം അതിന്റെ പൂർണ്ണതയിലെത്താൻ പൊതുജനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഇന്ത്യയെപ്പോലെ ജനസംഖ്യ ഏറിയ രാജ്യത്ത് ഓരോ പൌരനും വാക്സിനേഷൻ യജ്ഞം ഏറ്റെടുത്താൽ മാത്രമെ ലക്ഷ്യത്തിലെത്താൻ കഴിയൂവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു വാക്സിൻ യജ്ഞത്തിന്റെ നാല് ദിവസങ്ങൾ വ്യക്തിപരവും സാമൂഹികവുമായ കടമകൾ പാലിച്ച് കോവിഡ് നിർമ്മാർജ്ജനത്തിന് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു വ്യക്തി സമൂഹ ഭരണ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ പരിപാടിയിൽ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടെ പങ്കാളികളാകണമെന്ന് കേന്ദ്രസഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു

ദേദ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ രോഗബാധിതരെ കണ്ടെത്തിയ ആറ് തദ്ദേശസ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകൾ ജില്ലാകലക്ടർ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ താലൂക്കടിസ്ഥാനത്തിൽ ഇൻസിഡന്റൽ കമാൻഡന്റുമാരെ നിയമിച്ചു ജില്ലയിലെ ബീച്ചുകൾ ഡാമുകൾ എന്നിവയടക്കം വിനോദ സഞ്ചാര മേഖലകളിൽ വൈകീട്ട് അഞ്ചിനു ശേഷം പ്രവേശനം നിരോധിച്ചതായും കലക്ടർ അറിയിച്ചു

കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ആൾക്കൂട്ടമോ കൂടിച്ചേരലുകളോ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്

ദേദ മലപ്പുറം ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കുന്നു

കോവിഡ് വ്യാപനം വർധിക്കുന്ന സാഹചര്യത്തിൽ തവനൂരിൽ സഞ്ചരിക്കുന്ന കോവിഡ് വാക്സിനേഷൻ പരിപാടിക്ക് തുടക്കമായി ആരോഗ്യ വകുപ്പ് ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടെയാണ് സഞ്ചരിക്കുന്ന വാക്സിനേഷൻ പരിപാടി ആവിഷ്കരിച്ചത്

വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടം കർശനമായി നിയന്ത്രിക്കും ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടിയെടുക്കാൻ പോലീസിന് ജില്ലാ കലക്ടർ നിർദേശം നൽകി എല്ലാ കടകളിലും സാനിറ്റൈസർ ശാരീരിക അകലം തുടങ്ങിയ കൊവിഡ് പ്രോട്ടോകോൾ ശരിയായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും നിർദേശമുണ്ട് ദേദ കോവിഡ് ബാധിതനായ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ തിരുവനന്തപുരം മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു

മറ്റ് ഘടക കക്ഷി നേതാക്കൾക്ക് കിട്ടാത്ത പരിഗണന കെ ടി ജലീലിന് എന്തുകൊണ്ട് ലഭിക്കുന്നുവെന്ന കാര്യം പാർട്ടി അനുഭാവികൾ ചിന്തിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ദ്ദേ സർവേകൾ പ്രവചിച്ചതിനെക്കാൾ കൂടുതൽ സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുമെന്നും മുന്നണിക്ക് തുടർഭരണം ഉറപ്പാണെന്നും സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

കോൺഗ്രസ് ബി ജെ പി വോട്ടുകച്ചവടം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കില്ലെന്നും കോടിയേരി വിലയിരുത്തി വട്ടിയൂർക്കാവിൽ പാർട്ടി വിരുദ്ധപ്രവർത്തനം നടന്നിട്ടുണ്ടോയെന്ന കാര്യം പരിശോധിക്കുമെന്ന മുല്ലപ്പള്ളിയുടെ വെളിപ്പെടുത്തൽ തോൽവി മുന്നിൽക്കണ്ട് മുൻകൂർ ജാമ്യമെടുക്കലാണെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു ദര കേരളത്തിൽ എൽ ഡി എഫിന് ഭരണത്തുടർച്ച യുണ്ടാകില്ലെന്നും ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് രണ്ടാമൂഴം നൽകില്ലെന്നും എൻ ഡി എ കൺവീനർ പി കെ കൃഷ്ണദാസ് പറഞ്ഞു മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാക്കളും ഇതുവരെ നടത്തിയ കള്ളക്കച്ചവടങ്ങളുടെ കൂട്ടുക്കച്ചവടക്കാരനും ഇടനിലക്കാരനുമാണ് കെ ടി ജലീലെന്നും നടപടി എടുത്താൽ ഇക്കാര്യങ്ങൾ പുറത്താകുമെന്ന ഭയം മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്നും പി കെ കൃഷ്ണദാസ് ആരോപിച്ചു ദ്ദേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചെന്ന യൂത്ത് കോൺഗ്രസ് റിപ്പോർട്ട് മുൻ നിർത്തി വോട്ടുചോർച്ചയുണ്ടായോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു ജോൺസൺ എബ്രഹാം ചെയർമാനായ മൂന്നംഗ സമിതി ഇക്കാര്യം പരിശോധിക്കുമെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർഥി വീണ എസ് നായരുടെ പ്രചാരണ പോസ്റ്ററുകൾ ആക്രിക്കടയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് വോട്ട് ചോർച്ച അന്വേഷിക്കുന്നത് ഒപ്പം പോസ്റ്റർ സംഭവവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദേദ ഡി സി സി പ്രസിഡണ്ടുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ തുടർന്ന് ഏതാനും ജില്ലകളിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് നല്കിയ താൽക്കാലിക ചുമതല കാലാവധി ഇന്ന് അവസാനിക്കുമെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു

കഴിഞ്ഞവർഷം കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം പള്ളികൾ തുറന്നിരുന്നില്ല കോവിഡ് വ്യാപനം വീണ്ടുമുണ്ടെങ്കിലും ഇത്തവണ നിയന്ത്രണങ്ങളോടെ പള്ളിയിലെത്തി ആരാധനകൾ നടത്താമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ ഇന്ന് റമദാൻ മാസപ്പിറവി കാണാൻ സാധ്യതയുള്ളതിനാൽ പിറവി ദർശിക്കുന്നവർ വിവരമറിയിക്കണമെന്ന് ഖാസിമാരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി സയ്യിദ് നാസർ ഹയ്യ് ശിഹാബ് തങ്ങൾ പാണക്കാട് എന്നിവർ കോഴിക്കോട്ട് അറിയിച്ചു ദേദ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ വൈകീട്ട് സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി

ക്ഷേത്ര പരിസരത്ത് ചന്ദനതൈ നട്ട ശേഷം പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായ പൊതുപരിപാടിയിലും ഗവർണർ സംബന്ധിക്കും

ദ്ദേ കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സായാഹ്ന ദിനപത്രം സുദിനത്തിന്റെ പത്രാധിപർ മധു മേനോൻ നിര്യാതനായി

കണ്ണൂർ സർവകലാശാല തലശ്ശേരി ക്യാമ്പസിലെ ലീഗൽ സ്റ്റഡീസ് സെന്ററിൽ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം

മുഖ്യമന്ത്രി പിണറായി വിജയൻ മധുമേനോന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു ദ്ദേ പാനൂരിലെ മുസ്ലിംലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം ഏറ്റെടുത്തു തിരുവനന്തപുരം മേഖലാ ഐ

ദേദ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയും കാറ്റുമുണ്ടാകുമെന്ന് കേന്ദ്രകാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

വരെ വേഗത്തിൽ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം

ദേദ വെൽഫെയർ സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ വിഷുവിനോട് അനുബന്ധിച്ച് നാളെ രാവിലെ ആറ്റിങ്ങലിൽ ഭിന്നശേഷിക്കാർക്ക് വിഷുകോടി വിതരണം ചെയ്യും